ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയുമായുണ്ടായി ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടു

വിസാ അപേക്ഷകർ സമൂഹ മാധ്യമ ഉപയോഗത്തെപ്പറ്റി വിവരം നൽകണമെന്ന് യു

ലോകകപ്പ് ക്രിക്കറ്റിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ഇന്ന് പാകിസ്ഥാനെ നേരിടും മത്സരം ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ

പ്രതിരോധ മന്ത്രിയായി ചുമതലയേറ്റശേഷം ഡൽഹിക്ക് പുറത്തേക്കുള്ള ശീ രാജ്നാഥ് സിങ്ങിന്റെ ആദ്യ സന്ദർശനമാണിത് കരസേനാ മേധാവി ബിപിൻ റാവത്തും മന്ത്രിക്കൊപ്പം സിയാചിനിലെത്തും

ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിലുള്ള സിയാചിൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സൈനിക മേഖലയാണ്

സൈനികരും ഉദ്യോഗസ്ഥരും നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സന്ദർശനവേളയിൽ പ്രതിരോധ മന്ത്രി ആശയവിനിമയം നടത്തും സിയാചിൻ യുദ്ധ സ്മാരകത്തിൽ അദ്ദേഹം പുഷ്പചക്രം സമർപ്പിക്കും

മോലു ചിത്രഗാം മേഖലയിൽ രാവിലെ ആയിരുന്നു ഏറ്റൂമുട്ടൽ കൊല്ലപ്പെട്ട ഭീകരരുടെ മൃതദേഹം കണ്ടെടുത്തായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു മേഖലയിൽ നിരീക്ഷണം നടത്തുകയായിരുന്ന ദ്രുതകർമ്മസേന വിഭാഗത്തിനു നേരെ തീവ്രവാദികൾ ആക്രമണം നടത്തുകയായിരുന്നു

ഇന്ന് മുതൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഉഷ്ണ തരംഗത്തിന് ക്രമേണ കുറവ് വരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വിശദാംശങ്ങളുമായി പ്രിയ വ്വൊയ്സ് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് കാറ്റ് വീശാനുള്ള സാധ്യതയാണ് അത്യുഷണത്തിന് ശമനമാകാനുള്ള കാരണമെന്ന് കാലാവസ്ഥാ വകുപ്പ് ടിറ്ററിൽ അ്റിയിച്ചു ഇതനുസരിച്ച് ഇന്ന് മുതൽ പഞ്ചാബ് ഹരിയാന് ചണ്ണ്ഡിഗഡ് ഡൽഹി ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ചൂടിന്റെ തീവ്രതയ്ക്ക് കുറവുണ്ടാകും

ഹിമാചൽ പ്രദേശിൽ മഴ പെയ്തതിനെ തുടർന്ന് താപനിലയിൽ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരെ കുറവുണ്ടായി ഷിംല ധർമ്മശാല ഭൂന്താർ സുന്ദർനഗർ എന്നിവിടങ്ങളിൽ മഴ ഉണ്ടായി

അതേ സമയം രാജസ്ഥാനിൽ കൊടും ചൂട് സാധാരണ ജനജീവിതത്തെ സാരമായി ബാധിച്ചു

ഉത്തർപ്രദേശിൽ കൊടുംചൂട് തുടരുന്നതിനിടെ ഗോരഖ്പൂർ ഗോണ്ട തുടങ്ങിയ കിഴക്കൻ മേഖലയിൽ ഇന്നലെ ചാറ്റൽ മഴ ഉണ്ടായി

എല്ലാ ഭാഷകളെയും കേന്ദ്രഗവൺമെന്റ് ബഹുമാനിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റുകളോടും പൊതുജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരോടും ചർച്ച ചെയ്തശേഷമേ ത്രിഭാഷാനയം സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുകയുളളൂവെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച കരട് റിപ്പോർട്ട് മാത്രമാണ് മാനവ വിഭവശേഷി മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുളളത് ഇത് ്സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നുളള അഭിപ്രായ്ങ്ങൾ കൂടി പരിഗണിച്ചശേഷം മാത്രമേ നയം നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുകയുള്ളൂ

ന്യത്തീനെപറ്റി ചർച്ചുകളും വിശ കലനവും ആവശ്യമാണെന്നും വിദ്യാഭ്യാസ് മേഖലയിലെ പ്രധാന വിഷ യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽക്ണുമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയർ ആന്റ് എനർജിയുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസത്തെ സമ്മേളനം വിശാഖപട്ടണത്ത് ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു ഉപരാഷ്ട്രപതി

സ്വീഡനിലെ വിവിധ സൈനിക യൂണിറ്റുകൾ സന്ദർശിക്കുന്ന ഇദ്ദേഹം മുതിർന്ന വ്യോമസേന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തും വ്യോമ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ക്രിയാത്മകമായ ആശയവിനമയവും സന്ദർശനം ലക്ഷ്യം വെയ്ക്കുന്നു

ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ ഇത് സംബന്ധിച്ച് യോഗം ചേർന്നു

പൂനൈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലം വന്നാൽ മാത്രമേ അടുത്ത നടപടികളിലേക്ക് കടക്കൂ

രോഗിയുമായി ഇടപഴകിയ ആറ് പേരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്

ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിൻജിലി ബ്രിജേപ്പൂർ മണ്ഡലങ്ങളിൽ മത്സരിച്ച നവിൻ പട്നായിക് രണ്ടിടത്തും വിജയിച്ചിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ വോയ്സ് പാതയുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കഴിഞ്ഞ മാർച്ചിൽ നിർവഹിച്ചിരുന്നു സ്ഥലമെടുപ്പ് മണ്ണ് പരിശോധന സ്ഥലവുമായി ബന്ധപ്പെട്ട് മറ്റ് സാങ്കേതിക പരിശോധന തുടങ്ങിയവയെല്ലാം റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയാക്കിയത്

ദർശനം സൌകര്യപ്പെടുത്തുന്നതിനായി സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പശ്ചാത്തല പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞുവെന്ന് കാശി വിശ്വനാഥ് സ്പെഷ്യൽ ഏര്യ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടിവ് ഓഫീസർ വിശാൽസിംഗ് ആകാശവാണിയോട് പറഞ്ഞു

ഉച്ചയ്ക്കൂൾേഷം മൂന്ന് മണിക്കാണ് മത്സരം

ആദ്യ ്മത്സർത്തിൽ പാകിസ്ഥാൻ വെസ്റ്റിൻഡിസിനോട് ഏഴ് വിക്ക്റ്റിന് പരാജയം ഏറ്റുവാങ്ങിയിരുന്നു ബുധനാഴ്ച നടക്കുന്ന മത്സർത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും

മിക്സഡ് ഡഹിൾസിൽ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ മാരിയസ് കോപിൽ സഖ്യം പരാജയപ്പെട്ടു ഇതോടെ ടൂർണമെന്റിലെ ഇന്ത്യൻ സാന്നിധ്യം അവസാനിച്ചു

അനുമതിയില്ലാതെ ആരേയും തീർത്ഥാടന യാത്രയിൽ പങ്കെടുക്കാൻ അനുവദിക്കീല്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്

ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങ് തിരുവനന്തപുരം റീജിയണൽ ഡയറക്ടർ എസ്

സ്വാമി റിസർവ്വ് ബാങ്ക് ആസ്ഥാനമന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്തു

മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുമായും ചർച്ച തുടരുമെന്ന് ഇറാക്ക് പ്രസിഡന്റ് ബർഹം സാലി അറിയിച്ചു ബാഗ്ദാദിൽ യു എസ് ഇറാൻ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകൾക്കുശേഷം പ്രസിഡന്റിന്റെ ഓഫീസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

എസ്

മെക്സിക്കൻ സാമ്പത്തികകാര്യ മന്ത്രി ഗ്രാസിയേല മാർക്കസാണ് യു

വാണിജ്യ സെക്രട്ടറി വിൽബർ റോസുമായി കൂടിക്കാഴ്ച നടത്തുന്നത്